പരിശോധന ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റുമെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ സംസ്ഥാനത്ത് വോട്ടർപട്ടിക പുതുക്കൽ നടപടിക്ക് ഇന്ന് തുടക്ക മാകും പാല നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ യു

സ്ഥാനാർഥിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ജോസ് കെ

സ്ഥാനാർഥിയുടെ പഞ്ചായത്ത്തല കൺവെൻഷനുകൾ ഇന്ന് തുടങ്ങും

രണ്ട് ദിവസത്തിനകം സ്ഥാനാർഥിയെ പ്രഖ്യാപിക്കും മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി കെ

ശൈല ജ് സംസ്ഥാനത്തെ പരമ്പരാഗത തൊഴിൽമേഖലയ്ക്ക് പുതുജീവൻ നൽകാൻ ഗവൺമെന്റിനൊപ്പം ജനങ്ങളും സഹകരിക്കണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കിങ്സ്റ്റണിൽ ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിങ് തകർച്ച

ഗതാഗത നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴ ചുമത്തുന്നതാണ് പുതിയ നിയമം

വാഹനങ്ങൾ തടഞ്ഞുനിർത്തി പരിശോധി ക്കുന്ന നടപടി അവസാനിപ്പിച്ച് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റു മെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു

വാഹന ഉടമയുടെ കൈയ്യിൽ പണമില്ലെങ്കിൽ പി ഒ

മെഷിനുകൾ വഴിയും പണമടയ്ക്കാൻ സൌകര്യമൊരുക്കും ഓൺലൈൻ സംവിധാനവും ഉണ്ടാകും സംസ്ഥാനത്ത് വോട്ടർപട്ടിക പുതുക്കൽ നടപടിക്ക് ഇന്ന് തുടക്കമാ കും

വോട്ടർ പട്ടികയിൽ പേര് പരിശോധിക്കാനുള്ള അവസരം മുഴുവൻ സമ്മതിദായ കരും വിനിയോഗിക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാ റാംമീണ തിരുവനന്തപുരത്ത് അറിയിച്ചു

പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ യു

എഫ് സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കേരളാ കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം കോട്ടയത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനായി തോമസ് ചാഴികാടൻ അധ്യക്ഷനായി രൂപീകരിച്ച ഏഴംഗ സമിതി പ്രവർത്തകരും നേതാക്കളുമായി ചർച്ച പൂർത്തിയാക്കി ഉപസമിതിക്ക് മുമ്പാകെ സ്ഥാനാർത്ഥിയുടെ പേര് അവതരിപ്പിക്കും തുടർന്ന് യുഡിഎഫ് ഉപസമിതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് ജോസ് കെ മാണി എം

അതേസമയം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കേ രണ്ടില ചിഹ്നം അനുവദിക്കൂ എന്ന് പി

അതിനിടെ ഉപതിരഞ്ഞെടുപ്പിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പു പ്രചരണത്തിന് പഞ്ചായത്തു കൺവൻഷനുകളോടെ ഇന്ന് തുടക്കമാകും

എ സ്ഥാനാർത്ഥിയെ രണ്ടു ദിവസത്തിനകം തീരുമാനിക്കുമെന്ന് ബിജെപി ജില്ലാ നേതൃത്വം അറിയിച്ചു തനിക്കെതിരായ ഡി ജി

യുടെ പരാതിയെ നിയമപരമായി നേരിടുമെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു കേസിൽ ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും നിയമത്തെയും പൊതുസമൂഹത്തെയും ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അനുമതി നൽകുകവഴി പിണ്റായിയും നരേന്ദ്രമോദിയും ഒരേ തൂവൽപക്ഷികളാണെന്നു തെളിഞ്ഞതായി കോൺഗ്രസ് നിയമ സഭാകക്ഷി ഉപനേതാവ് കെ

രാഷ്ട്രീയ പ്രവർത്തകർ മൂല്യങ്ങളുടെ സംരക്ഷക രാകുകയെന്നത് ജനാധിപത്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന പ്രധാനകാര്യമാണെന്നും ഒ രാജഗോ പാലിനെപ്പോലെ നിസ്വാർഥരായ നേതാക്കൾ പ്രവർത്തകർക്ക് ഊർജ്ജവും മാതൃകയുമാണെന്നും ബി ജെ

സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻ പിള്ള പറഞ്ഞു

കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒ രാജഗോപാൽ നവതി ആഘോഷച്ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ അധികാരത്തിനപ്പുറം സത്യധർമ്മനിഷ്ഠയ് ക്ക് വില കൽപ്പിച്ച നേതാവായിരുന്നു ഒ രാജഗോപാലെന്നും അദ്ദേഹം പറഞ്ഞു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്താൻ പരിശ്രമിക്കുമെന്ന് മന്ത്രി കെ

നിർധനരായ ബി

എൽ

തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ അർബുദത്തെ അതിജീവിച്ചവരുടെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

നൂതനമായ ഒട്ടേറെ കാര്യങ്ങൾ ക്യാൻസർ ചികിത്സാ രംഗത്ത് നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഓൺലൈനിൽ ബുക്ക്ചെയ്യുന്ന ട്രെയിൻ ടിക്കറ്റിന് ് ഇന്ന് മുതൽ സർവീസ് ചാർജ് ഏർപ്പെടുത്തും നോൺ എ

ഇതിന് പുറമെ ജി

യും ബാധകമായിരിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ കാറ്ററിങ് ആൻഡ് ടൂറിസം കോർപറേഷൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഡിജി റ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ മൂന്ന് വർഷംമുമ്പ് ട്രെയിൻ ടിക്ക റ്റിന് സർവീസ് ചാർജ് ഒഴിവാക്കിയിരുന്നു ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് ഇന്ന് പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കാസർകോട് കണ്ണൂർ വയ നാട് കോഴിക്കോട്ട് മലപ്പുറം ഇടുക്കി എറണാകുളം കോട്ടയം ആല പ്പുഴ കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് കേരളതീരത്ത് മത്സ്യ ബന്ധനത്തിന് തടസ്സമില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരുവ നന്തപുരത്ത് അറിയിച്ചു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളും മൂന്ന് മാസത്തിനുള്ളിൽ ഹൈടെക്കാക്കുമെന്ന് മന്ത്രി പ്രൊഫ

സ്കൂളിലെ കുട്ടികളുടെ എണ്ണം ഇക്കാര്യത്തിൽ പ്രശ്നമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ കല്ല്യാശ്ശേരി കെ

ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കാഞ്ഞങ്ങാട്ട് നവീക രിച്ച ഹാന്റെക്സ് ഷോറൂമിന്റെയും ഓണം റിബേറ്റ് വിൽപ്പനമേളയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മികച്ച ഉൽപ്പ ന്നങ്ങൾ എന്ന വിശ്വാസത്തോടെ പൊതുജനങ്ങൾ കൈത്തറി ഉപയോ ഗിക്കണമെന്നും ഇത് പരമ്പരാഗത മേഖലയുടെ വളർച്ചയ്ക്കൊപ്പം നിര വധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കിങ്സ്റ്റണിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിങ് തകർച്ച് അഞ്ച് വിക്ക റ്റെടുത്ത ജസ്പ്രീത് ബുംറെയാണ് വിൻഡീസിന്റെ തകർച്ചയ്ക്ക് തുടക്ക മിട്ടത്

കേന്ദ്ര ഗവൺമെന്റിന്റെ ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറിന്റെ ഭാഗമായി ഇന്ന് കണ്ണൂരിൽ നിന്ന് മാടായിപാറയിലേക്ക് സൈക്കിൾ റൈഡ് നടത്തും കണ്ണൂർ സൈക്ലിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ രാവിലെ ഏഴിന് ടൌൺ സ്ക്വക്യറിൽ നിന്ന് സൈക്കിളോട്ടം ആരംഭിക്കും ഡ്യൂറന്റകപ്പ് കളിച്ച അതേ രീതിയിൽ ഐ ലീഗ് കളിച്ചാൽ ഗോകുലത്തിന് വിജയമുറപ്പാണെന്ന് മുൻ അന്തർദേശീയ താരവും പരിശീലകനുമായ ജോപോൾ അഞ്ചേരി കോഴിക്കോട്ട് പറഞ്ഞു ഡ്യൂറന്റ് കപ്പ് ചാംപ്യൻമാരായ ഗോകുലം കേരള എഫ്

താരങ്ങളുടേയും മുൻ ജേതാക്കളായ എഫ്

കൊച്ചിൻ താരങ്ങളുടേയും സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രാവിലെ ഒമ്പതിന് റെയിൽവെ സ്റ്റേഷനിൽനിന്ന് സ്വീകരിച്ചാ നയിക്കുന്ന ഫ്രെഡറിക്കിനെ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അനുമോദിക്കും ലക്നൌവിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ കേരള ടീമിന് ഇന്ന് പാലക്കാട്ട് സ്വീകരണം നൽകും രാവിലെ റപ്തി സാഗർ എക്സ്പ്രസിൽ എത്തുന്ന കായിക താരങ്ങളെ കേരള സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ എന്നിവയുടെ നേതത്വത്തിലാണ് സ്വീകരിക്കുക കേരള പോലീസ് ഓഫീസേർസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ നടക്കുന്ന സംസ്ഥാന കമറ്റി യാത്രയയപ്പ് സമ്മേളനം മന്ത്രി കെ

നാളെ രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പോലീസ് സേനയിലെ അംഗബല കുറവ് സേനാംഗങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു ഉത്തര റെയിൽവേ ഫരീദാബാദിനു സമീപം പാളത്തിൽ അറ്റകുറ്റ പ്പണി നടക്കുന്നതിനാൽ കേരളത്തിൽനിന്ന് ഡൽഹിയിലേക്കും തിരിച്ചു മുള്ള ഏതാനും ട്രെയിനുകൾ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു ഇന്ന് പുറപ്പെടേണ്ട എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് റദ്ദാക്കി ഈ മാസം മൂന്ന് നാല് ആറ് തീയ്യതികളിലും ഈ ട്രെയിൻ സർവീസ് നടത്തില്ല

കേരളത്തിലേക്കു സർവീസ് നടത്തുന്ന നിസാ മുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് നാല് ആറ് ഏഴ് ഒമ്പത് തീയ്യതിക ളിലും നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസ് പ്രതിവാര എക്സ്പ്രസ് ട്രെയിനുകൾ ഈ മാസം ആറിനും റദ്ദാക്കിയിട്ടുണ്ട്

കാലിക്കറ്റ് നോർത്ത് സർവ്വീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച നീതി മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം നിർവ ഹിക്കുകയായിരുന്നു മന്ത്രി

ജലീൽ നിർവ്വഹിക്കും താലൂക്ക്തല ഫെയറുകൾ നാളെമുതലും നിയോജക മണ്ഡല ഫെയറുകൾ ഈ മാസം ആറുമുതലും ആരംഭിക്കും ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോയുടെ ജില്ലാ താലൂക്ക് ഫെയറുകളുടെയും മിനി ഫെയറുകളുടെയും പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ കോട്ടമൈതാനത്ത് മന്ത്രി എ

ബാലൻ നിർവഹിക്കും